ധനക്കമ്മി പരിഹരിക്കാൻ റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരത്തിന്റെ ആവശ്യമില്ലെന്ന് ക്ലേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി

നടപ്പു സാമ്പത്തിക വർഷത്തിലും അടുത്ത സാമ്പത്തിക വർഷത്തിലും അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ തുടരുമെന്ന് കേന്ദ്രം

നടി ആക്രമിക്കപ്പെട്ട കേസിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി ദിലീപിന്റെ ഹർജി തള്ളി

ഇന്നലെ ന്യൂഡൽഹിയിൽ സ്വകാര്യ ചാനലുമായി സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി പ്രതിസന്ധി പരിഹരിക്കാൻ റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരം ഗവൺമെന്റ് ആവശ്യപ്പെട്ടതായി വാർത്തകൾ അദ്ദേഹം നിഷേധിച്ചു

ധനകമ്മി മറികടക്കാനോ ഗവണ്മെന്റ് ചെലവുകൾക്കോ ്ഇത്ത്രം ഫണ്ടുകൾ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഐ

എം

കെ ടി

പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സഭാധ്യക്ഷൻ അറിയിച്ചു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചുവരെ നിർത്തിവച്ചു

ഈ വിഷയത്തിൽ നടപടികൾ വേഗതയിലാക്കാൻ കേന്ദ്രം വടക്കു ക്ടിഴ്ക്കൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഷ്ടം അറിയിച്ചു മലയോര മേഖലകളിൽ ടവറുകൾ സ്ഥാപിക്കാൻ ബിഎസ്എൻഎല്ലിന് എൻ ഒ

അഥവാ നിർാക്ഷേപ പത്രം കാലതാമസമില്ലാതെ ലഭിക്കുന്നതിന് എല്ലാ സ്സ്ഥാനങ്ങളും സഹായിക്കണമെന്ന് ശ്രീ മനോജ് സിൻഹ ആവശ്യപ്പെട്ടു

മുൻകാലങ്ങളിലെ കോൺഗ്രസ് ഗവൺമെന്റുകളുടെ തെറ്റായ നയങ്ങൾ മൂലം കർഷകർ ദുരിതം അനുഭവിക്കകയാണെന്നും ശ്രീ തൊമാർ പറഞ്ഞു പാർലമെന്റിനു പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാര്യങ്ങളെ വേണ്ടത്ര ഗൌരവത്തോടെ കാണാത്ത സമീപനമാണ് എപ്പോഴും കോൺഗ്രസിന്റേതെന്നും ശ്രീ തൊമാർ പറഞ്ഞു

ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു

രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പൊൻത്രാസികൃഷ്ണനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

ഇത് അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റി ജന്റ്യയുടെ പ്രതിശീർഷ വരുമാനത്തിലും കാര്യമായ വർധനയുഊണ്ടെന്ന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തിറക്കിയ കണക്കുകൾ വൃക്തമാക്കുന്നു

ഈ സ്ഥിതി രണ്ടു ദിവസത്തേക്കു കൂടി തുടരുമെന്ന് സംസ്ഥാനത്തെ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു

ഏറ്റവും കുറഞ്ഞ താപനില പലയിടങ്ങളിലും സാധാരണ നിലയിലാണ്

ആഗോള ചെറുകിട ഇടത്തരം സംരംഭകരുടെ സമ്മേളനത്തെ ഡൽഹ്ഗിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി

കര വ്യോമ സേനകൾക്ക് ഉപഗ്രഹം പ്രയോജനകരമാകും ഇന്ത്യ മാത്രമാണ് പ്രവർത്തന പരിധി

മൂന്ന് ഘട്ടമായി പ്രവർത്തിപ്പിച്ചാണ് ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിക്കുകു

എസ് ആർ ഒ

ചിദ്ംബരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പാകെ ചോദ്യം ചെയ്യലിനായി ഹാജരായി

തലസ്ഥാനമായ ഇറ്റാനഗറിനടുത്താണ് എയർപോർട്ട് ലോഹിത് ജില്ലയിലെ ടെസ്സുവിൽ നടക്കുന്ന അരുണാചൽ റെയ്സിംഗ് പ്രചാരണ റാലിയിൽ സംസാരിക്കവെ മുഖ്യമന്ത്രി പെമ ഖണ്ഡുവാണ് ഇക്കാര്യം അറിയിച്ചത് അടുത്ത കാലത്തായി പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എയർ പോർട്ടുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തിയാക്കിയതായി അറിയിച്ചിട്ടുണ്ടെന്ന് ശ്രീ ഖണ്ഡു വൃക്തമാക്കി

നിലവിൽ പൊല്ലീസിന്റെ അന്വേഷണം തൃപ്തികരമായാണ് നടക്കുന്നതെന്നും ദിലീപ്പിന് ്വിചാരണ സമയത്ത് കൂടുതൽ വാദങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി

ഗവർണർ സത്യപാൽ മാലിക് ചെയർമാനായുള്ള സംസ്ഥാന ഭരണ നിർവഹണ കൌൺസിലാണ് പാനൽ രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്ന് ഔദ്യോഗിക വക്താവ് ജമ്മുവിൽ അറിയിച്ചു ഈ മാസം അവസാനത്തോടെ പദ്ധതികൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കണം

ഡിജി ലോക്കർ എം പരിവാഹൻ തുടങ്ങിയ ആപ്പുകളിൽ സൂക്ഷിച്ചിട്ടുള്ള ഡിജിറ്റൽ രേഖകൾ അംഗീകരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ട്രാഫിക് ഗതാഗത വകുപ്പുകൾക്ക് ഇത്തരം വിവരങ്ങൾ ഇ ചെലാൻ ആപ്പിലൂടെ ഒരേ സമയം പരിശോധിക്കാനാകുമെന്നും മന്ത്രാലയം അറിയിച്ചു

ചരിത്രപരമായ കൂടിക്കാഴ്ച നേപ്പാളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണെന്ന് മൈക്ക് പോംപിയോ അഭിപ്രായപ്പെട്ടു അമേരിക്ക നേപ്പാൾ ബന്ധത്തിൽ വലിയ പുരോഗതിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു

അമേരിക്കയിൽ നിന്നുള്ളവരാണ് മരിച്ചത്

റഷ്യക്ക് ഇത്തരത്തിലുള്ള ഭൂതല മിസൈലുകൾ നിർമിക്കേണ്ട ആവശ്യമില്ല

ഇന്നലെ ഉന്നതസേനാ മേധാവികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പുടിൻ